സൌകരൃങ്ങൾ ഒരുക്കുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

അഭിലാഷങ്ങളിലും മാറ്റം വന്നുതിനാൽ രാജ്യത്തെ ഐ ഐ

കളെ അടുത്ത്ലൂത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ടെന്ന് പ്രീധ്യാനമന്ത്രി

അതിർത്തിയിൽ തടയുന്നത് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു

ഇന്തൃ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കമാകും

ഐ ലീഗിൽ സുദേവ ഡൽഹിക്കെതിരെ ഗോകുലം കേരളയ്ക്ക് ജയം

ആരോഗൃമേഖലയിലെ ബജറ്റ് നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ വൻ സാമ്പത്തിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ ഉല്പാദനം ഇനിയും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണിപ്പോൾ രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് മുമ്പത്തേക്കാളേറെ വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അടിയന്തിര സാഹചര്യം നേരിടാൻ തയാറായിരിക്കണം

ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ഇത് നമ്മെ പ്രാപ്തമാക്കും

ആരോഗൃ മേഖലയിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു

ഐ

കളെ അടുത്ത തലത്തിലേയ്ക്ക് ഉയർത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഐ

തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ പ്രഭ്യ്യകേന്ദ്രമായി രാജ്യത്തെ ഐ

റ്റികൾ മാറണമെന്ന് ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി ക്രോൾ എബ്രഹാം

പുതുതായി ഒരാൾക്ക് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

മരണ നിരക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിനേക്കാൾ രണ്ടിരട്ടിയാണ് അമേരിക്കയിലെ മരണസ്ഥലിച്ചു

ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് കോവിഡ് പ്രതിരോധ മരുന്നു നൽകുന്നത്

കർണാടകം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ വിദ്യാർഥികളും ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് അവശ്യസാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പോലും തടയുന്ന സ്ഥിതിയുണ്ട് അന്തർസംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ നടപടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു

രാഹുൽ ഗാന്ധി എം

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് ശ്രീ

ഒരു ആഫ്രിക്കൻ രാജ്യവുമായി ഇന്ത്യ ഒപ്പിടുന്ന ആദ്യ വാണിജ്യ കരാറാണ് ഇത് ചരക്ക് സേവന കൈമാറ്റങ്ങൾ തർക്കപരിഹാരം ടെലികോം സാമ്പത്തിക സേവനങ്ങൾ അടക്കമുള്ളവ കരാറിൽ ഉൾപ്പെടുന്നു

എന്നാൽ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ദിനമായ ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി തമിഴ്നാട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അസംതൃപ്തി മൂലമാണ് വാക്കൌട്ട് നടത്തിയതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു

ജെ

അധികാരത്തിലേക്ക്

ജെ

ഒരു സ്വതന്ത്രനും വിജയിച്ചിട്ടുണ്ട്

ജി സി

ഇതോടെ ഉത്തർപ്രദേശിൽ അംഗീകാരമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം മൂന്നായി

ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഗോകുലം രണ്ടാം സ്ഥാനത്തെത്തി

വിശാഖപട്ടണത്തെ നാവികസേനാ കേന്ദ്രത്തിലാണ് ചടങ്ങുകൾ നടന്നത്

എസ്സ് ഡൽഹി ഐ

എസ്സ് മൈസൂർ എന്നിവയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്